പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച്ചൈനയിലേക്ക്

ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും

അഭിനന്ദനാർഹമെന്ന് യു

തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ

ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങുമായി ശ്രീ നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് വോയിസ് ഷാങ്ഹായ് സഹകരണ കൌൺസിലിൽ പൂർണ്ണ അംഗത്ത്വം ലഭിച്ചതിനു ശേഷം ഉള്ള ആദ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുതിൽ അതീവ താല്പര്യമുണ്ടെന്ന് യാത്ര പൂറപ്പെടുന്നതിനു ശ്രീ

തീവ്രവാദം വിഘടനവാദം എന്നിവയ്ക്കെതിരെയുള്ള സഹകരണം വാണിജ്യം ആരോഗ്യം കൃഷി പ്രകൃതി സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ പ്രോത്സാഹനം എന്നിവയാണ് ഉച്ചകോടിയിലെ പ്രധാന അജണ്ട രണ്ട് ദിവസത്തെ ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിംഗ് പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അംഗരാജ്യങ്ങളുടെ നേതാക്കന്മാരുമായും പ്രധാനമന്ത്രി ഉഭയ്ക്ക്ഷി ചർച്ചകൾ നടത്തും

വുഹാനിൽ ഈയിടെ നടന്ന ഇന്ത്യ ചൈന അനൌപ്പചാരിക ഉച്ചകോടി ഷാങ്ഹായ് സമ്മേളനത്തിൽ ഇന്ത്യയ്ക്ക് കരുത്തുപകരുമെന്ന് പ്രധാനമന്ത്രിയുടെ ചൈനാ സന്ദർശനത്തെ പരാമർശിച്ച പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു

ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഛത്തീസ്ഖഡ് പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് യോഗം ചേർന്നത് മാവോയിസ്റ്റ് ആക്രമണം കൂട്ടായി നേരിടാൻ യോഗം തീരുമാനിച്ചു സംഘടനകളുടെ അതിർത്തി മേഖലകളിൽ സുരക്ഷാസേനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ഒഡീഷ ഡിജിപി ആർ

ശർമ്മ അറിയിച്ചു

റ്റോഹിംഗ്യ വംശജരുടെ സർവ്വെ നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടു ഇന്നലെ ജമ്മുവിൽ നടന്ന പത്രസമ്മേളനത്തിൽ റോഹിംഗ്യൻ വംശജരെ നാട്ടിലെത്തിക്കാൻ ആഭ്യന്തരമന്ത്രാലയം കൈക്കൊണ്ട നടപടികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ഭാവിയിൽ രാജൃത്തിന്റെ പൌരത്വം അവകാശപ്പെടാൻ വേണ്ടിയുള്ള രേഖകൾ ഒന്നും തന്നെ റോഹിംഗ്യകൾക്ക് നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിൽ ആയിരത്തിലേറെ റോഹിംഗ്യൻ വംശജരാണ് താമസിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു

അപകടത്തിൽപെട്ടവ്വർ ഏറെയും വയലിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു്

ആഭ്യന്തര വകുപ്പ് ഉപമുഖ്യമന്ത്രി ജി

കോൺഗ്രസും ജെ

യുവും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ഊർജ്ജ വകുപ്പ് മുഖ്യമന്ത്രി വഹിക്കും

കുടിവെള്ള ശുചിത്വ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

വോട്ടർപട്ടികയിൽ വൃക്തികളുടെ ഫോട്ടോ ആവർത്തിച്ചു കണ്ടത് അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കലുമായി ബന്ധമില്ലെന്നും കമ്മീഷൻ പറഞ്ഞു

കഴിഞ്ഞയാഴ്ച കോൺഗ്രസ്സ് സംഘം തെരെഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു

മുത്തയ്യ്ക്കെതിരെ സി ബി

ഫസ്റ്റ് ലീസിംഗ് കമ്പനി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്ന മുത്തയ്യ മാനേജിംഗ് ഡയറക്ടർ ഫാറൂഖ് ഇറാനി എന്നിവർക്കെതിരെ വഞ്ചന വ്യാജരേഖചമയ്ക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് സി ബി ഐ ചെന്നൈ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്

ബി ഐ പക്താവ് ആർ

ഗൌർ പറഞ്ഞു

മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയാണ് ലക്ഷ്യം നിരോധന കാലത്ത് യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ ഇറങ്ങില്ല ട്രോളിംഗ് നിരോധനം ഫലപ്രദമാക്കാൻ ഫിഷറീസ് വകുപ്പും മറൈൻ എംഫോഴ്സ്മെന്റും കാവൽ ശക്തമാക്കും

കേന്ദ്ര സഹമന്ത്രിമാരായ രജൻ ഗോഹൊയ്നും അൽഫോൺസ് കണ്ണന്താനവും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു

മൊബൈൽ ലാപ്ടോപ്പ് ചാർജ്ജിംഗ് പോയിന്റ് ജൈവ ടോയ്ലെറ്റ് തുടങ്ങിയവ സവിശേഷതകളാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്

എൻ വികസന പങ്കാളിത്ത നിധിയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസന രാജൃങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സുസ്ഥിര വികസിത ലക്ഷ്യങ്ങൾക്കു വേണ്ടിയുള്ള പദ്ധതികൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിനുവേണ്ടി കഴിഞ്ഞ വർഷമാണ് ഈ പങ്കാളിത്ത നിധി പ്രവർത്തനം ആരംഭിച്ചത്

ബംഗളരുവും മലേഷൃയും തമ്മിൽ ഇന്നു നടക്കുന്ന മത്സരത്തിലെ വിജയിയെ ഫൈനലിൽ ഇന്ത്യ നേരിടും

തെക്കുപടിഞ്ഞാറൻ കാലവർഷ്ട ി മഹ്ാരാഷ്ട്ര മറാത്ത്വാഡ ഛത്തീസ്ഗഡ് ഒഡീഷ കർണ്ണാട്ടികൂ ഗോവ എന്നീ മേഖലകളിലേക്ക് മുന്നേറിയിട്ടുണ്ടെന്ന് കാലാപ്പസ്ഥാ നിരീക്ഷണം കേന്ദ്രം മേധാവി എം മഹാപത്ര അറിയിച്ചു

ഫോർട്ട് മേഖലയിലായിരുന്നു അപകടം രണ്ട് അഗ്നി ശമന ജീവനക്കാർക്ക് പരിക്കേറ്റു തീപിടുത്തത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു

പിയുമായ ശാന്താറാം നായിക് അന്തരിച്ചു

രാജ്യസഭയിലും ലോക്സഭയിലും അംഗമായിരുന്നിട്ടുണ്ട് സംസ്കാരം നാളെ നടക്കും

കഴിഞ്ഞ രാതിയിലായിരുന്നു ആക്രമണം